ന്യൂഡൽഹിയിൽ നടക്കുന്ന അഞ്ചാമത് ബൈനിയൽ ഇന്റർ ഗവൺമെൻൽ കൺസൾട്ടേഷൻസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജർമൻ ചാൻസലർ ആംഗല മെർക്കലും ഇന്ന് പങ്കെടുക്കും

ജമ്മു കാശ്മീർ വിഷയ്ത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ രാജ്യത്തിന്റെ ന് ഐക്യത്തെ ബാധിക്കുന്ന പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു

ഇന്ന് നടക്കുന്ന അഞ്ചാമത് ബൈനിയൽ ഇന്റർ ഗവൺമെന്റൽ കൺസൾട്ടേഷൻസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ജർമ്മൻ ചാൻസിലർ അദ്ധ്യക്ഷത വഹിക്കും

ജർമ്മൻ ചാൻസിലറും ഇന്ത്യൻ നേതൃത്വവും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ സാമ്പത്തിക പങ്കാളിത്തം വ്യാപാരം നിക്ഷേപം കൃഷി എന്നിവ മുഖ്യ ചർച്ചാ വിഷയമാകും ശാസ്ത്രം വിദ്യാഭ്യാസം സാങ്കേതികവിദ്യ ജനങ്ങൾ തമ്മിലുള്ള ആശയവിനിമയ പരിപാടികൾ സാംസ്ക്കാരിക വിനിമയം എന്നിവയായിരിക്കും ഉഭയകക്ഷി ചർച്ചകളിലെ മുഖ്യവിഷയങ്ങൾ വിവിധ മന്ത്രിമാർ ഫെഡറൽ ഗവൺമെന്റിലെ സ്റ്റേറ്റ് സെക്രട്ടറിമാർ ഉന്നത വ്യാപാര പ്രതിനിധി സംഘം തുടങ്ങിയവർ ചാൻസിലറെ അനുഗമിക്കും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുന്നതിന് സന്ദർശനം വഴിവയ്ക്കുമെന്ന് കേന്ദ്ര വിദേശകാര്യ വക്താവ് രവീഷ്കുമാർ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

ഇന്ത്യൻ സിവിൽ സർവ്വീസ് സർദാർ വല്ലഭായ് പട്ടേലിനോട് ഏറെ കടപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

സ്വകാര്യ അവകാശം ലംഘിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി കൈക്കൊള്ളുമെന്നും ഗവൺമെന്റ് അറിയിച്ചു വാട്ട്സ് ആപ്പിലെ മെസേജുകളിലൂടെ സ്ഥകാര്യത ലംഘിക്കുന്നതിനെക്കുറിച്ച് ഗവൺമെന്റിന് ആശങ്കയുണ്ടെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു ഇന്ത്യൻ മാധ്യമപ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവരുടെ വാട്ട്സ് ആപ്പ് മെസേജുകൾ ഇസ്രയേലി സ്പൈവെയർ പെഗാസസ് ഉപയോഗിച്ച് ചോർത്തി എന്ന വിവരം പുറത്തു വന്നതിനെ തുടർന്നാണ് പ്രസ്താവന

ടി ഡൽഹിക്കുള്ള എൻഡോവ്മെന്റ് ഫണ്ടിന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് തുടക്കം കുറിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് എൻഡോവ്മെന്റുകൾ അവിഭാജ്യ ഘടകമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഭാവിതലമുറയുടെ പഠനത്തിന് പിന്തുണ നൽകുന്നതിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ നിർണ്ണായക പങ്കാണ് വഹിക്കുന്നത് ഇന്ത്യയുടെ സംസ്ക്കാരം ഉയർത്തിക്കാട്ടുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രാധാന്യം ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്റ്റിലാകുമെന്നും ശ്രീ രാംനാഥ് കോവിന്ദ് പറഞ്ഞു

ഇതു സംബന്ധിച്ച അന്തിമ തീരുമാനങ്ങൾ സ്വീക്ടിിക്കുന്നതിന് മുന്നോടിയായി അസം മണിപ്പൂർ അരുണാചൽപ്രദേശ് എന്നീ ക്ഷേസ്ഥാനങ്ങളിലെ ജനങ്ങളുമായി ചർച്ച ചെയ്ത് അവരുടെ ആശങ്കകൾ കൂടി പ്പ് രിഗണിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി

നാളെ താഷ്ക്കന്തിൽ നടക്കുന്ന ഷാങ്ങ്ഹായ് സഹകരണ സംഘടനയുടെ ഉന്നത കൌൺസിൽ നേതാക്കളുടെ ചർച്ചയിൽ ശ്രീ രാജ്നാഥ് സിങ്ങ് ഇന്ത്യയെ പ്രതിനിധീകരിക്കും

ഇന്ത്യ ഷാങ്ങ്ഹായി സഹകരണ സംഘടയുടെ അംഗമായ ശേഷമുള്ള മൂന്നാമത്തെ ഉന്നത കൌൺസിൽ യോഗമാണ് ഇത്

ഇത്തരം പ്രസ്താവനകൾ രാജ്യത്തിന്റെ ഐക്യത്തെ ബാധിക്കുക മാത്രമല്ല അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് സഹായം നൽകുന്ന ഇന്തൃയുടെ അയൽരാജ്യം ഇത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

രാഷ്ട്രീയ ഏക്താ ദിവസിന്റെ ഭാഗമായി ഹൈദരാബാദിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു

ജില്ലയിലെ മറ്റ് ചില മേഖലകളിലും ചെറിയ തോതിൽ കടലേറ്റം ഉണ്ടായി പൊന്നാനി നഗരസഭ വെളിയങ്കോട് പെരുമ്പടപ്പ് പഞ്ചായത്ത് എന്നിവിടങ്ങളിലാണ് കടൽ ഏറെ നാശംവിതച്ചത് ശാന്തമായിരുന്ന കടൽ ഇന്നലെ രാവിലെ ഒമ്പതോടെയാണ് പ്രക്ഷുബ്ധമാകാൻ തുടങ്ങിയത് മണിക്കൂറുകളോളം കടലേറ്റമുണ്ടായി കടൽഭിത്തിയെ നിഷ്പ്രഭമാക്കി പതിനഞ്ച് അടിയോളം ഉയരത്തിലാണ് തിരമാല ഉയർന്നത് പതിറ്റാണ്ടുകൾക്കുശേഷമാണ് ഇത്ര വലിയ കടലേറ്റത്തിന് സാക്ഷിയായതെന്ന് തീരവാസികൾ പറയുന്നു പുതുതായി നിർമിച്ച കടൽഭിത്തികൾ പലതും തകർന്നിട്ടുണ്ട്

കടലേറ്റം രൂക്ഷമായതോടെ തീരത്തെ പല കുടുംബങ്ങളും ആദ്യം ബന്ധുവീടുകളിൽ ആണ് അഭയം തേടിയത്

പൊന്നാനിയിലും വെളിയങ്കോട്ടും ദുരിതാശ്ചാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല

ഈമാസം നാലാം തീയതി വരെ കാലാവസ്ഥാ ഭീഷണി നിലനിൽക്കുന്നതായും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ലക്ഷദ്വീപ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു

ജമ്മുകശ്മീരിലെ ചിലയിടങ്ങളിൽ ഇന്റർനെറ്റ് സൌകര്യം തടസ്സ്പ്പെടുന്നതാണ് സമയപരിധി നീട്ടാൻ കാരണം ചില പ്രത്യേക വിഭാഗങ്ങളിലെ ആദായനികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നലെയായിരുന്നു

മൂന്നു ദിവസം കൊണ്ടാണ് എല്ലാ സംവിധാനങ്ങളുമുള്ള വെബ്സൈറ്റ് രൂപീകരിച്ചതെന്ന് എൻ ഐ

പുതിയ ലഫ്റ്റനന്റ് ഗവർണറുടെ നിർദ്ദേശമനുസരിച്ച് പൊതുജനങ്ങൾക്ക് സഹായകമാകുന്ന രീതിയിലുള്ള സംവിധാനങ്ങളോടെയുള്ളതാണ് വെബ്സൈറ്റ് എന്ന് ശ്രീ പാൽഡൊൺ പറഞ്ഞു

ബുഡാപെസ്റ്റിൽ ഇന്ന് നടക്കുന്നു ക്ഫെനലിൽ ജപ്പാന്റെ ഹരുണോ ഒകുനോയാണ് പൂജയുടെ എത്തിരുളി ഇന്ത്യയുടെ സ്വർണ്ണ മെഡൽ പ്രതീക്ഷയുമായി ഇറങ്ങിയും ജ്യോതിക്ക് വെങ്കലമെഡൽ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു